രാജ്യത്തെ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥിനി കൂടിയായ ഭാഗീരഥിയമ്മയുടെ അടുത്ത ലക്ഷ്യം ഏഴാം തരം തുല്യതാ പരീക്ഷയാണ്

കാട്ടുതീ തൃശൂർ കൊറ്റമ്പത്തൂരിലുണ്ടായ കാട്ടുതീയിൽ മൂന്ന് വാച്ചർമാർ മരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നിർദേശം നൽകിയതായി വനം വകുപ്പ് മന്ത്രി കെ രാജു അറിയിച്ചു കാട്ടുതീ ഉണ്ടാകാൻ സാധ്യതയുളള മേഖലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശ്വം നൽകിയെന്നും മന്ത്രി പറഞ്ഞു